രണ്ടാം സർക്കാരിന് ഇന്ന് ഒന്നാം വാർഷികം

രാജ്യത്തെ പൌരന്മാർക്ക്പ്രപ്രധാനമന്ത്രിയുടെ കത്ത് കോവിഡ് മഹാമാരിയ്ക് പ്ര്യതിരോധിച്ചും സാമ്പത്തികമായി മുന്നേറിയും ലോക്കത്തിന് രാജ്യം മാതൃകയായെന്ന് പ്രധാനമന്ത്രി നര്ട്രേന്ദ്മോദി

പത്ത് പേർ രോഗമുക്തിനേടി പുതിയതായി അഞ്ച് ഹോട്ട് സ്പോട്ടുകൾ

രണ്ടാം മോദി സർക്കാർ ഇന്ന് ഒരു വർഷം തികയ്ക്കുന്നു പരിശ്രമവും കർത്തവ്യബോധവും വിജയത്തിലേക്ക് നയിക്കുമെന്നും പ്രതിസന്ധികളെ നേരിടാൻ താൻ രാപ്പകൽ കർമ്മനിരതനാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

പിന്തുണയുമാണ് പ്രതിസന്ധികളെ കൃമിട്ടിക്കടക്കാനുള്ള തന്റെ കരുത്തെന്നും ശ്രീ

പ്രധാനമന്ത്രി നരേന്ദ്രമോദ്രീയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാരിന് ഇന്ന് ഒരു പ്ലർഷം പൂർത്തിയായി ഇതിന്റെ ഭാഗമായി രാജ്യത്തെ പൌരന്മാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്ത് എഴുതി

കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത വോയ്സ് ആത്മവിശ്വാസത്തോടെയും ഊർജ്ജസ്വലതയോടെയും തികഞ്ഞ ജനങ്ങൾ കൊറോണയെ നേരിട്ടത് ലോകത്തിന് കാണിച്ചു കൊടുത്തതായും ലോകത്തെ ശക്തവും സമ്പന്നവുമായ രാജ്യങ്ങളു മായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യക്കാരുടെ കൂട്ടായ ശക്തിയും കഴിവും സമാനതകളില്ലാത്താണെന്നും പ്രധാനമന്ത്രി കത്തിൽ വൃക്തമാക്കി രാജ്യത്തെ തൊഴിലാളികളും കുടിയേറ്റ തൊഴിലാളികളും കരകൌശല വിദഗ്ദ്ധരും ചെറുകിട കച്ചവടക്കാരും ഉൾപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾക്ക് മഹാമാരിയിലൂടെ ദുരിതം നേരിടേണ്ടി വന്നു ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഒത്തൊരുമയോടെ പ്രവർത്തിക്കാനാണ് നാം ശ്രമിക്കുന്നതെന്നും പ്രശ്നങ്ങൾ ദുരന്തങ്ങളായി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ശ്രീ മോദി പറഞ്ഞു ഇന്ത്യയിലെ കൊറോണ ബാധ ലോകത്തിന് പ്രശ്നമാകുമെന്ന് മറ്റു രാജ്യങ്ങൾ ഭയപ്പെട്ടു അതേസമയം കൊറോണയെ ഫലവത്തായി നേരിട്ട് ലോകത്തെ അമ്പരപ്പിക്കാൻ ഇന്ത്യയ്ക്ക് ആയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു സാമ്പത്തികമായി മുന്നേറാനും രാജ്യത്തിന് ആയിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ പ്രതിസന്ധിഘട്ടത്തെ മറികടക്കുമെന്നും വളർച്ച യുടെയും വികസനത്തിന്റേയും ഒരു പുതിയയുഗം ആരംഭിക്കു മെന്നും അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃതവും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസന രീതിയും സാങ്കേതിക സാമ്പത്തിക രംഗങ്ങളിൽ ഇന്ത്യയെ ഒരു കയറ്റുമതി രാഷ്ട്രമാക്കാൻ സഹായിച്ചതായും അദ്ദേഹം ട്വീറ്റ് ചെയ്തു

ഏറ്റവും കൂടുതൽ രോഗമുക്തി നിരക്കുള്ളത് ആൻഡമാൻ നിക്കോബാറിലും മിസോറാമിലുമാണ്

പഞ്ചാബ് ഛണ്ഡിഗഡ് ആന്ധ്രപ്രദേശ് രാജസ്ഥാൻ ഗോവ ഉത്തർപ്രദേശ് ലഡാക്ക് തമിഴ്നാട് ഗൂജറാത്ത് എന്നിവിടങ്ങളിൽ രോഗമുക്തി നിരക്ക് ദേശീയ രോഗമുക്തി നിരക്കിനെക്കാൾ മുകളിലാണ്

തിളക്കമാർന്ന സംസ്ക്കാരം കൊണ്ടും സാഹോദര്യമുള്ള ജനങ്ങളാലും സമ്പന്നമാണ് ഗോവയെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു എല്ലാ ഇന്ത്യക്കാരുടെയും ഹൃദയത്തിൽ ഗോവയ്ക്ക് പ്രത്യേക സ്ഥാനമാണുള്ളതെന്ന് ഉപരാഷ്ട്രപതി എം

്ഡൽഹിയിൽ രോഗബാധിതരുടെ എണ്ണം വർധിക്കുന്ന സാഹചരൃം ആശങ്കയുണ്ടാക്കുന്നതായും എന്നാൽ സ്ഥിതി ഗതികൾ നേരിടാൻ സർക്കാർ സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു

ഇതുകൂടാതെ ഏഴ് എയർ ഇന്ത്യ ജീവനക്കാർക്കും രോഗം സ്ഥിരീകരിച്ചു

ഒരു ആരോഗൃ പ്രവർത്തകയ്ക്കും സമ്പർക്കത്തിലൂടെ രണ്ട് പേർക്കും രോഗം ബാധിച്ചു

തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കൽ പ്പൂാലക്കാട് മുൻസിപ്പാലിറ്റി തച്ചമ്പാറ പട്ടാമ്പി കോട്ടയം ജില്ലയ്ക്ക് മാടപ്പള്ളി എന്നിവയാണ് പുതിയ ഹോട്ട് സ്പോട്ടുകൾ

ഒരു റിപ്പോർട്ട്

രോഗബാധയിൽ ബ്രസീലാണ് രണ്ടാമത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രധാന മന്ത്രിയുടെ പ്രഭാഷണം കൃഷിഞ്ഞയുടൻ ആകാശവാണിയുടെ കേരളനിലയങ്ങളിൽ അതിന്റെ മലയാള പരിഭാഷ കേൾക്കാം

പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് ഇന്നലെ മുതൽ പൊലീസിന്റെയും സി

എഫ് ന്റെയും സേനയുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടന്നുവരികയായിരുന്നു

തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് തദ്ദേശവാസികളായ ഭീകരർ കൊല്ലപ്പെട്ടത്